മധ്യവർഗ്ഗത്തിനും പ്രാമുഖ്യം നല്കി കേന്ദ്രഗവൺമെന്റിന്റെ ഇടക്കാല ബജറ്റ്

കമ്പനികളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കിയെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ

പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് ബജറ്റെന്ന് പ്രതിപക്ഷം

കർഷകർ അസംഘടീത്മേഖലയിലെ തൊഴിലാളികൾ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ എന്നീവിഭാഗങ്ങൾക്ക് ആശ്വാസം നൽകുന്നതാണ് ഇടക്കാല ബജറ്റ്

അസംഘടിത മേഖലയിലെ പത്ത് കോടി പേർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും

അഞ്ച് ലക്ഷം രൂപവരെ വരുമാനമുള്ളവരെ ആദായ നികുതി പരിധിയിൽ നിന്ന് ഒഴിവാക്കി ഒപ്പം ഒന്നരലക്ഷം രൂപയുടെ നിക്ഷേപങ്ങൾക്കും നികുതി ഒഴിവാക്കി

ന്റോട്ട് അസാധുവാക്കൽ നടപടിയും ജി എസ് ടി യും വളർച്ച വർദ്ധിപ്പിക്കുമെന്ന് ബജറ്റിൽ പറയുന്നു പൊതുമേഖലാ ബാങ്കുകൾക്കും വിദ്യാഭ്യാസ മേഖലയ്ക്കും സഹായം നൽകും കൂടുതൽ വിവരങ്ങളുമായി ലിഖിത വിജയൻ

അതിർത്തി സംരക്ഷണത്തിന് കൂടുതൽ പ്രാധാനൃം നൽകൂം സൈനികർക്ക് ശമ്പള വർദ്ധന നടപ്പാക്കൂം രാജ്യത്ത് ചരക്ക് സേവന നികുതിയിൽ നിന്നുള്ള വരുമാനം ജനുവരിയോടെ ഒരു ലക്ഷം കോടി കവിഞ്ഞു നികുതി ശൃംഖലയിലേക്ക് പുതുതായി ഒരുകോടിയിലേറെ ആളുകൾ എത്തി

റെയിൽവേയ്ക്ക് ഒന്നരലക്ഷം കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്

ഉ കള്ളപ്പണത്തിനും അഴിമതിക്കും എതിരായ നടുപടികൾ തുടരുമെന്നും ധനമന്ത്രി പീയുഷ് ഗോയൽ ഉറപ്പ് നൽകി

ന്യൂസ് ഡെസ്ക് ആകാശവാണി

കൂടുതൽ വിവരങ്ങളുമായി ലിഖിത വിജയൻ

പത്ത് വർഷം കൊ ് ഇന്ത്യയെ ലോകത്തെ ഏറ്റവും മികച്ച സാമ്പത്തിക ശക്തിയാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ളതാണിത്

ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങളും ഭരണ സുതാരൃതയും ഉറപ്പു വരുത്തുന്ന ഡിജിറ്റൽ പ്രിപ്ലവമാണിത് ഡിജിറ്റൽ സാക്ഷരതയും സ്വയം പര്യാപ്തതയും ഈ ബൃഹത് പദ്ധതിയുടെ ആദ്യപടിയാണ് ലോകത്തെ ഏറ്റവും സുന്ദരവും സ്ഥച്ഛവുമായി ഭൂമിയായി ഇന്ത്യയെ മാറ്റാനുള്ള പദ്ധതിയാണ് ഗ്രീൻ ക്ലീൻ ഇലക്ട്രിക് ഇന്ത്യ എന്നിതിലൂടെ ലക്ഷ്യമിടുന്നത്

സ്വയം പര്യാപ്തമായ വൃവസായ ശൃംഖല സൃഷ്ടിച്ച് വൃവസായങ്ങളെ ലോകനിലവാരത്തിലെത്തിക്കുകയാണ് ലക്ഷ്യം കുടിവെള്ളം സുലഭമായ രാജ്യമാക്കി ഇന്ത്യയെ മാറ്റുകയെന്ന ദൌത്യത്തോടെയാണ് സുലഭം സുരക്ഷിതം ജലം എന്ന പദ്ധതി മുന്നോട്ട് വെയ്ക്കുന്നത്

ഇന്ത്യയെ ലോകത്തെ ഒന്നാം നമ്പർ ബഹിരാകാശ ശക്തിയാക്കുകയെന്ന ലക്ഷ്യത്തോടെയുള്ളതാണ് ബഹിരാകാശ ശക്തി പദ്ധതി

ഉദ്യോഗസ്ഥഭരണമുക്തമായ ഭരണ രീതി കൊ ുവരും

ജനങ്ങൾക്ക് നേട്ടമു ാക്കുന്ന യാതൊന്നും ബജറ്റിലില്ലെന്ന് കോൺഗ്രസ് നേതാവ് മല്ലാകാർജ്ജുന ഖാർഗെ പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു കർഷകർക്ക് അനുകൂലമല്ലെങ്കിലും ആദായനികുതി ഇളവ് മധ്യവർഗ്ഗത്തിന് സ്ഹായകരമാകുമെന്ന് ശ്രീ ശശിതരൂർ അഭിപ്രായപ്പെട്ടു

ബജറ്റ് അവതരണത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

തേവര സേക്രട്ട് ഹാർട്ട് കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

വിദ്യാഭ്യാസമാണ് വളർച്ചയുടെ അടിസ്ഥാനമെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു ഗവർണ്ണർ ജസ്റ്റിസ് പി സദാശിവം ചടങ്ങിൽ സംബന്ധിച്ചു